ടി ഐ കളെ അന്തീർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് മന്ത്രി ടി

രാമകൃഷ്ണൻ

ഡിഎംകെ നേതാവ് എം കരുണാനിധിയുടെ ആരോഗൃനിലയിൽ നേരിയ പുരോഗതി

എസ് ഇ

മൈക്കിലൂടെയും നേരിട്ടുമാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുക

കര നാവിക വ്യോമസേനകളുടെയും തീരസേനയുടെയും സഹായം സംസ്ഥാന ഗവൺമെന്റ് തേടി വ്യോമസേനയുടെ രണ്ടു ഹെലികോപ്ടറുകളും നാലു കമ്പനി കരസേനയും രക്ഷാപ്രവർത്തനത്തിനു തയ്യാറാണ് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാൻ തീരസ്സനയുടെ ബോട്ടുകളും തയ്യാറായിട്ടുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ

ഡാം തുറക്കുന്നതിനു മുന്നോടിയായി മികച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു കാട്ടാനശല്ല്യം രൂക്ഷമായ ശാന്തൻപാറ മേഖലയിലും ശ്രീ

കാട്ടാനശല്പ്യം നേരിടുന്ന പ്രദേശങ്ങളിലെ കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഗവൺമെന്റ് അടിയന്തിര നടപടി കൈക്കൊള്ളണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ട്ടടടടടടടടടടടടട മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നുവിടുന്ന സാഹചര്യമുണ്ടായാൽ തീരദേശത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ ശക്തമാക്കുമെന്നും ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇടുക്കി ജില്ലാ കളക്ടർ കെ

തുടർന്ന് ഓരോ അടി ഉയരുമ്പോഴും ഇത്തൂസംബന്ധിച്ച മുന്നറിയിപ്പുകൾ നൽകും മഴ ശക്തമായി തുടരുകയും നീരൊഴുക്ക് കൂടുകയും ചെയ്താൽ മാത്രമേ ഡാം തുറക്കേണ്ട സാഹചര്യമുള്ളൂ മുന്നറിയിപ്പ് നൽകിയ ശേഷം മാത്രമേ ഡാം തുറക്കുന്ന സാഹചര്യമുണ്ടാകൂ എന്നും ഇതുസംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് ജനങ്ങളിൽ യഥാസമയം എത്തിക്കുമെന്നും ഊഹാപോഹങ്ങളിൽ വിശ്വസിക്കരുതെന്നും കളക്ടർ വൃക്തമാക്കി

ഇതനുസരിച്ചുള്ള മാറ്റങ്ങൾ മുന്നൊരുക്കങ്ങളിൽ ഉണ്ടാകണമെന്ന് അഡ

മുൻസാഹചര്യങ്ങളിൽ നിന്ന് വൃത്യസ്തമായി ഇത്തവണ ഡാം തുറന്നാൽ കൂടുതൽ പ്രദേശങ്ങളിൽ വെള്ളം കയറാനും പാലങ്ങൾ അപകടത്തിലാകാനും സാധ്യത ഉണ്ടെന്ന് ഇ

ബിജിമോൾ എം

ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണമെന്നും എം

ഈ സമയത്ത് കടൽ പ്രക്ഷുബ്ബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ജാഗ്രത ്ര പാലിക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പുണ്ട്

കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് ഐ ടി ഐകളെയും അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് മന്ത്രി ടി

സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും തൊഴിൽ സാന്യത വർദ്ധിപ്പിക്കുന്നതിനുമായി സംസ്ഥാനത്ത് സംരംഭകത്വ വികസന ക്സബ്ബുകൾക്ക് രൂപം കൊടുക്കാൻ തീരുമാനിച്ചതായും മന്ത്രി അറിയിച്ചു കണ്ണൂർ ജില്ലയിലെ പന്ന്യന്നൂരിൽ ഗവൺമെന്റ്

സംസ്ഥാനത്തെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ഗവ

ടി ഐയാണ് പന്ന്യന്നൂർ പഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്

ശൈലജ വ്യക്തികളുടെ ശാരീരികമാനസിക പ്രത്യേകതകൾക്കനുസരിച്ചുള്ള യോഗാഭ്യാസങ്ങൾ പ്രചരിപ്പിക്കണമെന്ന് മന്ത്രി കെ

എല്ലാവർക്കും ഒരുപോലെ പരിശീലിക്കാവുന്ന അഭ്യാസങ്ങൾ തെരഞ്ഞെടുത്ത് പ്രചരിപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു മൂന്നാമത് സംസ്ഥാന യോഗ് ചാമ്പ്യൻഷിവപ്പിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കണ്ണൂരിൽ സ്ഥാപിക്കുന്ന അന്താരാഷ്ട്ര ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ യോഗയ്ക്ക് പ്രധാനപ്പെട്ട ഇടം ഉണ്ടാകുമെന്നും രണ്ടു കൊല്ലം കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യഘട്ടത്തിന്റെ നിർമ്മാണം പൂർത്തിയാവുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു

കരുണാനിധി ചികിത്സയിൽ കഴിയുന്ന ഡിഎംകെ നേതാവും തമിഴ്നാട് മുൻമുഖ്യമന്ത്രിയുമായ എം

അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ആശങ്കപ്പെടാനില്ലെന്ന് മുഖ്യമന്ത്രി എടപ്പാടി

കരുണാനിധി ചികിത്സയിൽ കഴിയുന്ന കാവേരി ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ച് മടങ്ങവ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി ഒ

മൂന്ന് ദിവസത്തിനുശേഷമാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണ വില മാറുന്നത്

പ്രകൃതിവിഭവ പരിപാലനത്തിന്റെ ഗുണ്ഫലങ്ങൾ പ്രതിപാദിക്കുന്ന വിവിധതരം പ്രദർശന വസ്തുക്കൾ സോയിൽ മ്യൂസിയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോയിൽ മ്യൂസിയത്തെ കുറിച്ച് സെൻട്രൽ സോയിൽ അനലിക്കൽ ലബോറട്ടറി പ്രിൻസിപ്പൽ സോയിൽ കെമിസ്റ്റ് ശ്രീ അനിൽ എം ജോസഫ് ആകാശവാണിയോട്

ആക്രമണത്തിനിടെ പെൺകുട്ടിയുടെ ബന്ധുക്കൾക്കും പരിക്കേറ്റതായാണ് റിപ്പോർട്ട്

പുനലൂർ വെട്ടിത്തിട്ടചാമ്പലംകോട് ഷാജൻ ഭവനിൽ രാജുകോശി ഭാര്യ മേരിക്കുട്ടി എന്നിവരാണ് തു്ങ്ങിമരിച്ചത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം മക്കളുമൊത്ത് ഭക്ഷണം കഴിച്ച ശേഷം വീടിന്റെ മറ്റൊരു മുറിയിൽറ്റു ദമ്പതികൾ ഉറങ്ങാൻ കിടന്ന ദമ്പതികളെ ഇന്ന് പുലർച്ചെ ് മക്കളാണ് തൂങ്ങിനിൽക്കുന്ന നിലയിൽ കണ്ടത്

ഐ ബിനു വർഗീസ് എസ്

രാജീവ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി

കൊല്ലം സ്വദേശി സിയാദിനെയാണ് പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തത്

വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും സ്വയം തൊഴിൽ പദ്ധതിയിലൂടെ തയ്യാറാക്കുന്ന വസ്ത്രങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ കരകൌശല ഉൽപന്നങ്ങൾ തുടങ്ങിയവ ഇടനിലക്കാരില്ലാതെയാണ് മേളയിൽ വിറ്റഴിക്കുന്നത് മേള അടുത്ത മാസം അഞ്ചിന് സമാപിക്കും

വിജയികൾക്ക് മന്ത്രി കെ

കോർപറേഷൻ ഓഫീസിനു സമീപം ഇന്ന് പുലർച്ചെയാണ് അറുപത് വയസോളം പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്